വാർത്തകൾ വിശദമായി രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണം തുടർച്ചയായി കുറയുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി ആകെ കേസുകളുടെ പത്ത് ശതമാനത്തിൽ താഴെയാണ് ചികിത്സയിലുള്ളത്

പോസിറ്റീവിറ്റി നിരക്ക് കഴിഞ്ഞ മൂന്ന് ദിവസമായി അഞ്ച് ശതമാനത്തിലും താഴെയാണ്

വൈറസ് വ്യാപനം ഫലപ്രദമായി ചെറുക്കാൻ സാധിച്ചതിന്റെ സൂചനയാണിത്

രുഭ തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞുതുടങ്ങിയതോടെ രോഗം സ്ഥിരീകരിച്ചു ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിലും വലിയ രോഗികളുടെ എണ്ണം കുറയുന്നത് ആശ്വാസത്തിനു കുറവുണ്ടായി വകനൽകുന്നതാണെങ്കിലും ജാഗ്രത ഇനിയും ശക്തിപ്പെടുത്തുകതന്നെ വേണമെന്നു ജില്ലാ കളക്ടർ ഡോ നവ്ജ്യോത് ഖോസ പറഞ്ഞു രുഭ കൊവിഡ് പ്രതിരോധം ഓരോരുത്തരുടെയും കൈകളിലാണെന്നും സ്നേഹം കൈവിടാതെ സാമൂഹ്യ അകലം പാലിക്കണമെന്നും കവി സച്ചിദാനന്ദൻ ആകാശവാണിയോട് പറഞ്ഞു

ദ്ദേ കൊല്ലം തൃക്കരുവയിൽ കൊവിഡ് പ്രോട്ടോക്കോൾ ഫീൽഡ് പരിശോധനയ്ക്കെത്തിയ സെക്ടറൽ മജിസ്ട്രേറ്റിനെയും സംഘത്തെയും അവഹേളിക്കാൻ ശ്രമിച്ച സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിച്ചു

ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ ബ്രിട്ടൺ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ രോഗവ്യാപന നിരക്ക് വീണ്ടും ഉയർന്നു ദേദ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ആരോഗ്യപ്രവർത്തകർ നല്ല നിലയിൽ പ്രവർത്തിച്ചു എന്നതാണ് ഇതുവരെയുള്ള അനുഭവമെന്നും തെറ്റിധാരണയുണ്ടാക്കുന്ന പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉയർന്നു വന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

എന്നിട്ടും തെറ്റായ പ്രചരണം നടത്താൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുഭ ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് പിടിച്ചെടുക്കാനും ലൈസൻസ് അയോഗ്യമാക്കാൻ ശിപാർശ ചെയ്ത് ലൈസൻസിംഗ് അധികാരിക്ക് അയച്ചു കൊടുക്കാനും വാഹനപരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥന് അനുവാദം നൽകിയെന്ന് എൻഫോഴ്സ്മെന്റ് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം

പേരാമ്പ്ര സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

കേന്ദ്രഗവൺമെന്റിന്റെ നിയുക്ത ഏജൻസിയായ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആന്റ് ഇംപ്പിമെന്റേഷൻ ട്രസ്റ്റുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നോഡൽ ഏജൻസിയായ കിൻഫ്രയാണ് തിരുവനന്തപുരത്ത് കരാറിൽ ഒപ്പുവെച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന കൊച്ചി ബംഗളൂരു വ്യാവസായിക ഇടനാഴി ചരിത്രപരമായ നാഴികക്കല്ലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഉല്പാദന മേഖല കാർഷിക സംസ്കരണ സേവനങ്ങൾ കയറ്റുമതി അധിഷ്ഠിത യൂണിറ്റുകൾ എന്നിവയിലെ നിക്ഷേപം ഉത്തേജിപ്പിക്കുന്നതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വിശദാംശങ്ങളുമായി ഹബീബ് റഹ്മാൻ

ആദ്യഘട്ടത്തിൽ പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളെയും രണ്ടാംഘട്ടത്തിൽ കോഴിക്കോട് മലപ്പുറം കാസർകോട് കണ്ണൂർ ജില്ലകളെയുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ കേരള പൊലീസ് അക്കാഡമിയെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്നും വിവിധ സർവകലാശാലകളുടെ സഹകരണത്തോടെ സംസ്ഥാന പൊലീസ് സേനയെ മികവുറ്റതാക്കുന്നതിന് നടപടികൾക്ക് തുടക്കം കുറിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള പൊലീസ് അക്കാഡമി സംഘടിപ്പിച്ച രണ്ടാമത് പൊലീസ് സയൻസ് കോൺഗ്രസ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

നവരാത്രി പൂജയിലെ ഏഴാമത്തെ ദിവസമായ ഇന്ന് വൈകുന്നേരം പൂജവെയ്പ്പ് ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലു വീടുകളിലും പുസ്തകങ്ങളും പഠനോപകരണങ്ങളും പൂജ വെയ്ക്കും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം പേരും വീടുകളിൽ തന്നെയാണ് പൂജ വെയ്ക്കുന്നത് ക്ഷേത്രങ്ങളിലും ഇത്തവണ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടക്കുക തിങ്കളാഴ്ച രാവിലെയാണ് പൂജയെടുപ്പും വിദ്യാരംഭവും

വിജയത്തോടെ ഹൈദരാബാദ് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി

ഇന്ന് ഷാർജയിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും രുഭ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യകേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയതോടെ ഏത് സമയത്തും തൊട്ടടുത്ത് മികച്ച ചികിൽസ ലഭ്യമാകുന്ന സാഹചര്യമാണെന്നും കഴിഞ്ഞ നാലര വർഷത്തിനിടെ ആരോഗ്യമേഖലയ്ക്ക് വലിയ മാറ്റമാണ് ഉണ്ടായതെന്നും മന്ത്രി കെ

കാസർകോട്ടെ നർക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

നെൽ സംഭരണത്തിലെ ഗുരുതരമായ വീഴ്ചമൂലം കർഷകർ വൻപ്രതിസന്ധിയിലായെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ദേദ മിസോറാം മുൻഗവർണർ കുമ്മനം രാജശേഖരനെതിരെ കള്ളക്കേസെടുത്ത കേരള പൊലീസിന്റെ നിലപാടിനെതിരെ ഇന്ന് ബി ജെ പി സംസ്ഥാന വ്യാപകമായി കരിദിനമാചരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡൻറ് കെ

സ്വർണ്ണക്കടത്തിൽ നാണംക്കെട്ട ഗവൺമെന്റ് കുമ്മനത്തിനെതിരെ കേസെടുത്ത് ബി

പി വേട്ട നടപ്പിലാക്കുകയാണെന്നും ഇതിനെ രാഷ്ട്രീയമായി നേരിടുമെന്നും അദ്ദേഹം തിരുവന്തപുരത്ത് പറഞ്ഞു

കെ രാഘവൻ എം പി കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ബോർഡ് ചെയർമാനും കത്തയച്ചു ഇക്കാര്യം പുനപരിശോധിക്കണമെന്നും തീരുമാനവുമായ് മുന്നോട്ട് പോകുകയാണെങ്കിൽ മെമു പോലുള്ള സർവ്വീസുകൾ പകരം ആരംഭിക്കണമെന്നും എം പി റെയിൽവെ മന്ത്രിയോടും ചെയർമാനോടും ആവശ്യപ്പെട്ടു